ന്യൂനപക്ഷ സമൂദായങ്ങളുടെ ശാക്തീകരണത്തിനായി ഗവൺമെന്റ് നടപടികൾ എടുത്ത് വരികയാണെന്ന് മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി

ലിംഗ വിവേചനത്തെക്കുറിച്ചും ഭിന്നശേഷി കുട്ടികൾക്ക് സൌകരൃങ്ങൾ ഭദ്രമാക്കുന്നത് സംബന്ധിച്ചും വിദ്യാർത്ഥികളിൽ അവബോധം വളർത്തണമെന്ന് കേരള ഗവർണർ

പേർ കൊല്ലപ്പെട്ടു

സായി പ്രണീതും ക്വാർട്ടറിൽ

പാർലമെന്ററി കാര്യങ്ങളെ കുറിച്ചുള്ള മന്ത്രിതല സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നാണ് ഈ തീരുമാനം എടുത്തത്

വഞ്ചന ക്രിമിനൽ ഗൂഡാലോചന എന്നീ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ പ്രത്യേക ജഡ്ജി ഭരത് പരാശർ ചുമത്തിയത് മധ്യപ്രദേശിൽ കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ് ഉടലെടുത്തത് സ്വന്തമാക്കാൻ തെറ്റായ വിവരങ്ങൾ നൽകി കൽക്കരി മന്ത്രാലയത്തെ കബളിപ്പിച്ചെന്നാണ് സിബിഐ കുറ്റപത്രത്തിൽ പറയുന്നത്

എല്ലാവർക്കും ഒപ്പം എല്ലാവരുടേയും വികസനം എന്ന ഗവൺമെന്റിന്റെ മുദ്രാവാക്യമനുസരിച്ച് എല്ലാവർക്കും തുല്യാവസരം നൽകുന്നത് ന്യൂനപക്ഷ വകുപ്പ് ഉറപ്പാക്കുന്നുണ്ടെന്നും ശ്രീ മുക്താർ അബ്ബാസ് നഖ്വി പറഞ്ഞു

പരിപോഷിപ്പിക്കണമെന്ന് ഗവർണർ തിരുവനന്തപുരം വെങ്ങാനൂർ ഗേൾസ് ഹയർസെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

കേന്ദ്ര ഗവൺമെന്റിനാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത് കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

കേന്ദ്ര ഗവൺമെന്റിന്റെ ധനസഹായത്തോടെ വേണം ഇത്തരം പ്രത്യേക കോടതികൾ സ്ഥാപിക്കേണ്ടത് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയുടെ നേതൃത്വത്തിൽ ജസ്റ്റിസ് ദീപക് ഗൂപ്ത ജസ്റ്റിസ് അനിരുദ്ധ ബോസ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പോക്സോ കേസുകൾ വാദിക്കാൻ പരിശീലനം നേടിയ ഈ വിഷയത്തിൽ അവഗാഹമുള്ള പ്രോസിക്യൂട്ടർമാരെ നിയമിക്കണം ഇത്തരം കേസുകളിൽ ഫോറൻസിക് റിപ്പോർട്ടുകൾ സമയബന്ധിതമായി സമർപ്പിക്കുന്നത് ഉറപ്പാക്കണമെന്ന് സംസ്ഥാനങ്ങളിലെയും കേന്ദ്ര ഭരണ ് പ്രദേശങ്ങളിലേയും ചീഫ് സെക്രട്ടറിമാരോടും സൂപ്രീം കോടതി ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രത്തിലെയും സംസ്ഥാനങ്ങളിലെയും വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി ശമ്പളം മറ്റാനുകൂല്യങ്ങൾ എന്നിവ സംബന്ധിച്ച് നിയമ നിർമ്മാണം നടത്താൻ കേന്ദ്രത്തിന് അനുമതി നൽകുന്നതാണ് പുതിയ ഭേദഗതി

ഉച്ചയ്ക്കുശേഷം ബിൽ ചർച്ചയ്ക്കെടുത്തപ്പോൾ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ നാല് തവണ നിർത്തി വയ്ക്കേണ്ടി വന്നു

പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്ര സിംഗ് രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം

വാഹനത്തോട് ബന്ധിപ്പിച്ചിരുന്ന സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് അപകടം ഉണ്ടായതെന്ന് കാബൂൾ പോലീസ് വക്താവ് വൃക്തമാക്കി അതിനിടെ കാബൂളിന്റെ കിഴക്കൻ മേഖലയിൽ ഇന്ന് മറ്റൊരു സ്ഫോടനം ഉണ്ടായി എന്നാൽ ആർക്കും അപകടമുണ്ടാതായി റിപ്പോർട്ടില്ല

വി സിന്ധുവും ബി

എന്നാൽ ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ ഡെൻമാർക്ക് താരത്തോട് പരാജയപ്പെട്ട് ഇന്ത്യയുടെ എച്ച് എസ് പ്രണോയി ടൂർണമെന്റിൽ നിന്നും പുറത്തായി ജപ്പാൻ താരം അയാ ഒഹോരി യെ ഒരു മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഒളിംമ്പിക് വെള്ളി മെഡൽ ജേതാവായ സിന്ധു പരാജയപ്പെടുത്തിയത്

റിട്ടയേഡ് ജസ്റ്റിസ് ബി എൻ ശ്രീ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള വിദ്ഗ്ധ് സമിതി ഈ വിഷയത്തിൽ കരട് സമർപ്പിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

ലോക്സഭയിൽ അനുബന്ധ ചോദൃങ്ങൾക്ക് മറുപടി പറയുകയായിരുന്ന ശ്രീ കിരൺ റിജിജു

ഗുണനിലവാരമുള്ള പരിശീലന സംവിധാനവും ലോകനിലവാരത്തിലുളള അടിസ്ഥാന സൌകര്യങ്ങളും താരങ്ങൾക്ക് നൽകുന്നുണ്ട് ഇതിലൂടെ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്താൻ കായിക താരങ്ങൾക്ക് കഴിയുമെന്നും മന്ത്രി പറഞ്ഞു

രാജ്യത്തിന്റെ വിവിധ ഗ്രാമപ്രദേശങ്ങളിൽ വരൾച്ചയെ നേരിടാനുള്ള മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടെന്ന് ലോക്സഭയിൽ രേഖാമൂലം അദ്ദേഹം മറുപടി നൽകി ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ജലശക്തി അഭിയാൻ ആരംഭിച്ചത്

പഞ്ചാബ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പരസ്യപ്പലകയിൽ ഇരയുടെ ഫോട്ടോ പ്രദർശിപ്പിച്ചതാണ് നടപടിക്ക് കാരണമായത് ഹോഷിയാർപൂരിലെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായ കർണയിൽ സിംഗിനെ സസ്പെൻഡ് ചെയ്തു വോട്ടർമാരെ ബോധവത്ക്കരിക്കുകയും തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാക്കുകയും ചെയ്യുന്ന പരിപാടിയുടെ ചുമതലയുണ്ടായിരുന്ന രാജൻ മോംഗയ്ക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ശുപാർശയുണ്ട് ഹോഷിയാർപൂരിലെ പ്രസ് ഉടമ തജീന്ദർ സിംഗിനെതിരെ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തു

ആരോഗ്യ സംരക്ഷണ മേഖലയിലെ നൂതന ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് ധാരണാ പത്രം

ന്യൂഡൽഹിയിൽ ദൂരദർശൻ കേന്ദ്രത്തിൽ സംപ്രക്ഷേണത്തിനുള്ള അത്യാധുനിക സംവിധാനം ഉദ്ഘാടനം ചെയ്യവേയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്

മുഹമ്മദ് ജോൺ എൻ ചന്ദ്ര ശേഖരൻ ഡി എം കെയിൽ നിന്ന് എൻ ഷൺമുഖം പി വിൽസൺ എം ഡി എം കെയിൽ നിന്ന് വൈകോ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്